ഡൽഹിയിലെ രാജ്പഥിൽ നടക്കുന്ന പരേഡിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിവാദ്യം സ്വീകരിക്കും

പി ബാലസുബ്രഹ്മണ്യത്തിന് പത്മവിഭൂഷൺ ഗായിക കെ എസ് ചിത്രക്ക് പത്മഭൂഷൺ കൈതപ്രം ദാമോദരൻ നമ്പൂിതിരി കെ കെ രാമചന്ദ്രൻ പുലവർ ബാലൻ പൂതേരി ഒ

സന്തോഷ് ബാബുവിന് മരണാനന്തര ബഹുമതിയായി മഹവീർ ചക്ര നൽകും വൈസ് അഡ്മിറൽ ആർ ഹരികുമാറിനും ബ്രിഗേഡിയർ കെ പി പുരുഷോത്തമനും പരമ വിശിഷ്ട സേവാ മെഡൽ

ഡൽഹി രാജ്പഥിൽ നടക്കുന്ന പരേഡിൽ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് അഭിവാദ്യം സ്വീകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകം സന്ദർശിക്കുന്നതോടെ പരേഡിന് തുടക്കമാകും കൊവിഡ് മഹാമാരി കണക്കിലെടുത്ത് ഇത്തവണ പരേഡ് റൂട്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട് പതിവുപോലെ വിജയ് ചൌക്കിൽ നിന്നാരംഭിക്കുന്ന പരേഡ് ചെങ്കോട്ടയിൽ സമാപിക്കുന്നതിന് പകരം ദേശീയ സ്റ്റേഡിയത്തിലാകും അവസാനിക്കുക

കൊവിഡ് പശ്ചാത്തലത്തിൽ വിദേശ രാജ്യത്ത് നിന്ന് ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ടാതിഥിയുണ്ടാവില്ല രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും സാമൂഹിക സാമ്പത്തിക പുരോഗതിയും വിളിച്ചോതുന്നതായിരിക്കും രാജ്പഥിലെ പരേഡ്

നിമിഷ അരുൺ നൽകുന്ന റിപ്പോർട്ട് ദ്ദേ രാജ്പഥിൽ ഇന്ന് നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിന്റെ കൊയർ ഓഫ് കേരള നിശ്ചല ദൃശ്യം ഇടംപിടിക്കുന്നത് രണ്ടുഭാഗങ്ങളായി തയ്യാറാക്കിയ ഫ്ളോട്ടിന്റെ മുൻഭാഗത്ത് തേങ്ങ ചകിരി എന്നിവയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പരമ്പരാഗത കയർ നിർമ്മാണ ഉപകരണമായ റാട്ടും കയർ പിരിക്കുന്ന ഗ്രാമീണ സ്ത്രീകളെയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ കായൽപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണൽത്തിട്ടയും കായലിലേയ്ക്ക് ചാഞ്ഞുനിൽക്കുന്ന ചീനവലയും കരയിൽ കായ്ച്ചു നിൽക്കുന്ന തെങ്ങുകളും ഫ്ളോട്ടിന് മിഴിവേകും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രമുഖ ടാബ്ലോ ഡിസൈനർ ബാപ്പാദിത്യ ചക്രവർത്തിയാണ് ഫ്ളോട്ട് നിർമ്മിച്ചത് ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയോടെ തോറ്റം ശൈലിയിലുള്ള പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് ശ്രീവത്സൻ ജെ മേനോനാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേഴ രാജ്യം നിരവധി മേഖലകളിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ചതായി രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് പറഞ്ഞു സാമ്പത്തിക പരിഷ്കരണ നടപടികൾ അതിവേഗം തുടരാനായെന്ന് രാഷ്ട്രപതി പറഞ്ഞു തൊഴിൽ കാർഷിക മേഖലകളിൽ വളരെക്കാലമായി പരിഗണനയിലിരുന്ന പരിഷ്കരണ നടപടികൾ നടപ്പാക്കിയത് ഇതിന് സഹായകമായെന്നും രാഷ്ട്രപതി പറഞ്ഞു

പ്രകൃതി ദുരന്തങ്ങളും കോവിഡും ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിട്ടും രാജ്യത്തെ കാർഷികോൽപ്പാദനം നിലനിർത്താൻ കർഷകർക്ക് കഴിഞ്ഞുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു സ്വയംപര്യാപ്ത ഇന്ത്യ സ്വന്തം കോവിഡ് വാക്സിൻ നിർമ്മിച്ചുവെന്ന് പറഞ്ഞ രാഷ്ട്രപതി രാജ്യത്തെ ജനങ്ങളോട് മാർഗനിർദേശങ്ങളനുസരിച്ച് വാക്സിൻ എടുക്കാൻ ആവശ്യപ്പെട്ടു

മറ്റ് രാജ്യങ്ങൾക്കും ഇന്ത്യ വാക്സിൻ നൽകുന്നുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു

സായുധസേന പൊലീസ് പാരാമിലിറ്ററി എൻ

ജില്ലാതല പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും

മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്തും കെ രാജു പത്തനംതിട്ടയിലും ജി സുധാകരൻ ആലപ്പുഴയിലും പി തിലോത്തമൻ കോട്ടയത്തും എം

മണി ഇടുക്കിയിലും എ

തൃശൂരിൽ വി

സുനിൽകുമാറും പാലക്കാട്ട് കെ കൃഷ്ണൻകുട്ടിയും മലപ്പുറത്ത് ഡോ

ടി ജലീലും കോഴിക്കോട്ട് ടി

രാമകൃഷ്ണനും വയനാട്ടിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കണ്ണൂരിൽ ഇ

ജയരാജനും കാസർകോട്ട് ഇ ചന്ദ്രശേഖരനും ദേശീയ പതാക ഉയർത്തും

ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസൊ ആബെ ഹൃദ്രോഗ വിദഗ്ദ്ധൻ ഡോ

എം ഹെഗ്ഡെ ഇസ്ലാമിക പണ്ഡിതൻ മൌലാന വഹീദുദീൻ ഖാൻ പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ ഏഴ് പേർക്ക് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു മുൻ ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ ഗായിക കെ

മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി കേശുഭായ് പട്ടേൽ മുൻ അസം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പാവകളി കലാകാരൻ ഷൊർണൂരിലെ കെ

രാമചന്ദ്രൻ പുലവർ ബാലൻ പൂതേരി ഡോ ധനഞ്ജയ് ദിവാകർ സദ് ദേവ് ഒ

പത്മ പുരസ്കാരത്തിന് അർഹരായവരെയോർത്ത് അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു രാജ്യത്തിനും മനുഷ്യരാശിക്കും അവർ നൽകിയ സംഭാവനകളെ വളരെയധികം വിലമതിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു രംഭ കഴിഞ്ഞ വർഷം ലഡാക്ക് അതിർത്തിയിലെ ഗാൽവനിൽ ചൈനീസ് ഭടന്മാരുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട കേണൽ ബി സന്തോഷ്ബാബുവിന് മരണനാനന്തര ബഹുമതിയായി മഹാവീർചക്ര നൽകും

വൈസ് അഡ്മിറൽ ആർ ഹരികുമാറിനും അടൽ തുരങ്കം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബ്രിഗേഡിയർ കെ പി പുരുഷോത്തമനും പരമോന്നത സേനാ പുരസ്കാരമായ പരമ വിശിഷ്ട സേവാ മെഡൽ നൽകും രംഭ സേവനത്തിനിടയിലെ ധീരകൃത്യത്തിന് നൽകുന്ന രാഷ്ട്രപതിയുടെ പൊലീസ് ധീരതാ മെഡൽ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സി ആർ

എഫ് ജവാൻ മോഹൻലാലിന് മരണാനന്തര ബഹുമതിയായി നൽകും

രും സംസ്ഥാനത്തെ പതിനായിരം ഗവൺമെന്റ് ഓഫീസുകൾ ഹരിത ഓഫീസുകളായി മാറുന്നതിന്റെ പ്രഖ്യാപനം ഇന്ന്മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഹരിത ചട്ട പാലനത്തിന്റെ നിലവാരമനുസരിച്ച് എബിസി എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് ഓഫീസുകളെ ഹരിത ഓഫീസുകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹരിതചട്ടം പാലിക്കുന്ന ഓഫീസുകളിൽ ജീവനക്കാരും സന്ദർശകരും പാലിക്കേണ്ട നിർദേശങ്ങൾ എഴുതി പ്രദർശിപ്പിക്കും രംഭ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം ഏഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും

കായിക രംഗത്തെ മികവിലൂടെ ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിനായി കായിക രംഗത്തെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു

ദേശീയ ആരോഗ്യ മിഷന്റെ സഹായത്തോടെ ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി

ദര സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ സുരക്ഷിത മേഖലയിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളിലാണെന്ന് മന്ത്രി ജെ

വ്യക്തിഗത വായ്പ സ്വർണ്ണ പണയ വായ്പ ഭവന വാഹന മൈക്രോ ഫിനാൻസ് വായ്പകളും കേരള ബാങ്ക് അനുവദിക്കുന്നുണ്ട്

ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഇന്ന് നോർത്ത് ഇസ്റ്റ് യുനൈറ്റഡ് എ

കെ മോഹൻ ബഗാനെ നേരിടും